നമസ്തേ ട്രംപ് പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു

ജനാധിപത്യ രീതികളാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധം ശക്തമാക്കുന്നതെന്ന് പ്ര്യാനമ്പ്രി ഇന്ത്യൻ ജനതയുമായി വ്യക്തി ബന്ധം സ്ഥാപ്പിച്ച് ഡോണൾഡ് ട്രംപ്

ഇരു രാഷ്ട്രങ്ങൾക്കും ബാധകമായ പാരമ്പര്യ മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ചും അഭിപ്രായം വ്യക്തമാക്കി ഇരു രാഷ്ട്രങ്ങളുടെയും ജനാധിപത്യ ഭരണ്ട് രീതിയ്ക്ക് ഊന്നൽ നൽകുന്നതായിരുന്നു പ്രധാനമന്ത്രി നര്യേന്ദ്രമോദി നടത്തിയ സ്വാഗത പ്രഭാഷണം പ്രസിഡന്റ് ട്രംപുമായുള്ള സൌഹൃദത്തെ കുറിച്ചും ശ്രീ മോദി പ്രത്യേകം പരാമർശിച്ചു

നിരവധി സമാന മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും അമേരിക്കയുമെന്ന് മുൻ സൌത്ത് കരോളീന ഗവർണറും റിപബ്ലിക്കൻ നേതാവുമായ നിക്കി ഹാലി അഭിപ്രായപ്പെട്ടു ട്രംപ് ഭരണത്തിലെ ആദ്യ രണ്ട് വർഷങ്ങളിൽ ഐക്യരാഷ്ട്ര സഭയിലെ അമേരിക്കൻ സ്ഥാനപതിയും ക്യാബിനറ്റ് റാങ്കിലുള്ള ഇന്ത്യൻ വംശജയായ ആദ്യ അമേരിക്കകാരിയുമാണ് ഹാലി മോദി ട്രംപ് ഉച്ചകോടി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ഭിന്നതകൾ കുറയ്ക്കുമെന്നും ഊർജ പങ്കാളിത്തവും പ്രതിരോധ ഇടപാടുകളും ഉറപ്പുവരുത്തുമെന്നും മുൻ വൈറ്റ് ഫ്റൌസ് ഉദ്യോഗസ്ഥൻ പീറ്റർ ലാവോയി പ്രത്യാശ പ്രകടിപ്പിച്ചു

ഇത് സംബന്ധിച്ച ആയുധ നിയമങ്ങളിലും ചട്ടങ്ങളിലുമാണ് കേന്ദ്രം ഭേദഗതി വരുത്തിയത് ഒളിമ്പിക് മത്സരങ്ങളിലെ ഇന്ത്യയുടെ പ്രധാന ഇനങ്ങളിലൊന്നാണ് ഷൂട്ടിംഗ് എന്നതു കണക്കിലെടുത്താണ് പുതിയ ഭേദഗതിയെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പരിശീലനം നടത്താൻ താരങ്ങളെ ഈ നീക്കം സഹായിക്കുമെന്നും മന്ത്രാലയം പ്രതീക്ഷ പ്രകടിപ്പിച്ചു

മുതിർന്ന അഭിഭാഷകരായ സാധന രാമചന്ദ്രൻ സഞ്ജയ് ഹെഗ്ഡെ എന്നിവരെയാണ് കോടതി മധ്യസ്ഥരായി നിയോഗിച്ചത് റിപ്പോർട്ട് ബുധനാഴ്ച പരിഗണിക്കുമെന്ന് ജസ്റ്റിസുമാരായ എസ്

സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ്ലഫ്റ്റനന്റ് ഗവർണർ ടിറ്റർ സന്ദേശത്തിലൂടെ അറിയിച്ചു സമാധാനം കാത്തു സൂക്ഷിക്കണമെന്ന് ജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു

ത്രിപുര ഹൈക്കോടതി ജഡ്ജിയായി സത്യഗോപാൽ ് ചതോപാധ്യായേയും മണിപ്പൂർ ഹൈക്കോടതി ജഡ്ജിയായി അഭിഭാഷകനായ അഹന്തം ബിമോൽ സിംഗിനേയും നിയമിക്കാനുള്ള ശുപാർശയ്ക്കും കൊളീജിയം അംഗീകാരം നൽകി

ഉൌരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയ്ക്ക് നല്കിയ കരാറിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി പാസ്പോർട്ട് വിവരങ്ങൾ സ്വകാര്യസ്ഥാപനത്തിന് നല്കില്ലെന്ന പൊലീസിന്റെ പുതിയ ഉത്തരവ് കണക്കിലെടുത്താണ് ഹൈക്കോടതിയുടെ നടപടി സർക്കാരിന് തുടർനടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി

ന്യൂഡൽഹിയിൽ ശ്യാമ പ്രസാദ് മുഖർജി റൂർബ്ബൻ മിഷന്റെ നാലാം വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ പ്രതിവർഷം ആറായിരം രൂപ സർക്കാർ സഹായമായി ലഭിക്കുന്ന പദ്ധതിയാണിത് മൂന്ന് മാസത്തിലൊരിക്കൽ രണ്ടായിരം രൂപ വീതമാണ് ബാങ്ക് അക്കൌണ്ടിലെത്തുക

കൂടുതൽ വിവരങ്ങളുമായി ദീപു

ഭരണകക്ഷിയായ ചൈനീസ് കമ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രഭാവം പ്രദർശിപ്പിക്കുന്നതിനുളള വേദി കൂടിയാണ് പാർലമെന്റിന്റെ വാർഷിക സമ്മേളനം ചൈനയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവ്വ സംഭവങ്ങളിൽ ഒന്നായാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്

വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ വന്യ ജീവികളുടെ വിപണനം ചൈനു സമ്പൂർണ്ണമായും നിരോധിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വുഹാനിൽ വന്യ ജീവികളെ വിൽപ്പന ചെയ്യുന്നു മാർക്കറ്റിൽ നിന്നുമാണ് വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടതെന്ന നിഗ്രമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം

കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്രയ്ക്ക് ഇറാഖ് മുൻപുതന്നെ വിലക്കേർപ്പെടുത്തിയിരുന്നു

സി

ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടക്കുന്ന ്മർസ്മരത്തിൽ ടോസ് നേടിയ ബംഗ്ലാദേശ് ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു

മൂന്നു ദിവസം നീണ്ട എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിന് ശേഷം കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ ഇന്നലെ ലണ്ടനിൽ അറിയിച്ചതാണ് ഇക്കാര്യം

ഈ രണ്ടിനങ്ങളിലെ മെഡലുകൾ രാജ്യങ്ങളുടെ അന്തിമ പോയിന്റ് പട്ടികയിൽ പരിഗണിക്കുമെന്നും ഫെഡറേഷൻ അറിയിച്ചു മേള സമാപിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും പട്ടികയിൽ ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തുക